വളർച്ചയുമായി ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ന്റെ മൂന്നാം ഭ്രമണപഥം ഉയർത്തൽ വിജയകരം

എസ് ഡോളറിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്കുമായി ആഗോള സാമ്പത്തിക വളർച്ചാ രംഗത്ത് ഇന്ത്യ സുപ്രധാന സ്ഥാനത്തെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഈ കണക്ക് അടുത്ത ഏഴ് വർഷത്തിൽ ഇരട്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പോർട്ടോ നോവയിൽ ബെനിൻ നാണഷണൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി

ഈയൊരു വീക്ഷണത്തിലൂടെ ശക്തവും ഐശ്ചര്യ സമ്പന്നവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ആഭ്യന്തര പുരോഗതിയ്ക്കു മാത്രമല്ല വിദേശ ബന്ധങ്ങൾക്കും ഈയൊരു കാഴ്ചപ്പാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ബെനിന്റെ സമഗ്ര വികസനത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്

ഇന്ത്യയുടെ ഈ സഹായഹസ്തം ഇരുരാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കരുത്തേകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വത്തിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ബെനിൻ നൽകിവരുന്ന പിന്തുണയ്ക്ക് രാഷ്ട്രപതി നന്ദി പറഞ്ഞു

രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങ് മൊസമ്പിക്കൻ പ്രതിനിധി അറ്റനേഷിയോ സാൽവേരേ എംറ്റുമുക്കേയുമായി ഇന്നലെ മാപുറ്റോയിൽ നടത്തിയ നയതന്ത്രതല ചർച്ചയെ തുടർന്നാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് തീരുമാനം ഇന്ത്യയും മൊസാബിക്കും തമ്മിലുളള പ്രതിരോധ സഹകരണത്തിനും ഉഭയകക്ഷി സഹകരണത്തിനും മുതൽക്കൂട്ടായിരിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

മ്യാൻമാർ പ്രതിരോധ സേവനവിഭാഗം കമാൻഡർ ഇൻ ചീഫ് സീനിയർ ജനറൽ മിൻ ഓങ് ഹെലൈങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ച്ചയ്ടിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്

കലാപങ്ങൾ അടിച്ചമർത്തുകൂ ശ്രേഷി വർദ്ധിക്കുക സാമ്പത്തിക സൈനിക നാവിക മേഖലകളിൽ സഹകരണത്തിനും ഇരു രാജ്യങ്ങളുടേയും ഉഭയ്ക്ക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു

മുഖ്യമന്ത്രി നിതീഷ്കുമാർ ഉപമുഖ്യമന്ത്രി സുശീൽ മോഡി എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി സ്ഥിതിഗതി വിലയിരുത്തിയത് വെള്ളപൊക്ക ദുരിതാശ്വാസത്തിന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും കഴിയുന്ന എല്ലാസഹായവും ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് നൽകാൻ കേന്ദ്രം തയ്യാറാണെന്നും പ്രധാനമന്തി പിന്നീട് ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

രാജ്യത്തെ പാവപ്പെട്ട നിക്ഷേപകരെ ഷ്ട്രൂഷ്ട്രന്ം ചെയ്യുന്ന വ്യാജപദ്ധതികൾക്ക് എതിരെയുള്ള ബ്രി്ലിനെ പാർലമെന്റിൽ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ് പാർട്ടികളും പിന്തുണച്ചു

ഗുണമേന്മയുള്ളതും ത്രാങ്ങാവുന്ന ചിലവിലുമുളള മെഡിക്കൽ വിദ്യാഭ്യാസം പ്രദാനം ച്ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്

മൂന്നാം കക്ഷി പരിശോധന കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് പ്രകാശന ചടങ്ങിൽ സംസാരിക്കവേ കേന്ദ്രമന്ത്രി എടുത്തുപറഞ്ഞു വൃവസായ മേഖലയുടെ ഉത്തേജനത്തിന്റെ ആവശ്യകതയും ശ്രീ

പരിസ്ഥിതി സംരക്ഷണത്തിന് തന്റെ ഗവൺമെന്റ് മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു

മേഖലയിൽ ഉണ്ടായ അപകടത്തിൽ വിമാനത്തിലെ രണ്ട് പൈലറ്റ്മാർക്കും ജീവഹാനി സംഭവിച്ചതായാണ് റിപ്പോർട്ട്

അപകടത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റതിനാൽ മരണസംഖ്യ കൂടിയേക്കാമെന്നും സൂചനയുണ്ട്

എസ് ആർ

സെപ്റ്റംബർ ഏഴിനാണ് പേടകം ചന്ദ്രനിൽ ഇറങ്ങുക ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബി ഐ സമർപ്പിച്ച പ്രഥമ വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലെ ചില ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് പ്രിഷയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നിരോധിച്ച ഗുഡ്ക പോലുള്ള പൂക്ലയില ഉല്പന്നങ്ങളുടെ അനധികൃത ഉല്പാദനം ജറ്റിക്കൂമതി വിപണനം വിതരണം തുടങ്ങിയവയെ സംബ്ലസ്ഡിച്ച് സിബിഐ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്

ഹരിയാനയിലെ മാനേസറിൽ ഇന്നലെ ദേശീയ സുരക്ഷാ ഗാർഡിന്റെ എവറസ്റ്റ് കൊടുമുടി പര്യവേക്ഷണത്തിന് പച്ചക്കൊടി കാട്ടിയശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അത്യാധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം സംഘത്തിന് ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു മുംബൈ പത്താൻകോട്ട് അക്ഷർധാം എന്നിവിടങ്ങളിലെ ഭീകരാക്രമണവേളയിൽ ദേശീയ സുരക്ഷാ ഗാർഡ് ഒരുക്കിയ ശക്തമായ പ്രതിരോധത്തെ മന്ത്രി പ്രശംസിച്ചു

പലായനം ചെയ്ത അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമിന്റെ അനന്തരവനാണ് റിസ്വാൻ കസ്ക്കർ ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കവേ ഒരു കവർച്ചാക്കേസുമായി ബന്ധപ്പെട്ട് റിസ്വാനെ ക്രൈംബ്രാഞ്ച് അസ്സ്കൂചെയ്തിരുന്നു

വനിതാ സിംഗിൾസിൽ ചൈനയുടെ ഹാൻ യുവിനെയാണ് സിന്ധു ആദ്യമത്സരത്തിൽ നേരിടുക നേരത്തെ ജപ്പാൻ ഓപ്പണിൽ സിന്ധു ഹാൻ യുവിനെ ആദ്യ റൌണ്ടിൽ പരാജയപ്പെടുത്തിയിലുന്നു വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ സൈനനെഹ്വാളുംപുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ സായ് പ്രണീത് കിഡംബി ശ്രീകാന്ത്എച്ച് എസ് പ്രണോയ് സമീർവർമ്മ പി കശ്യപ് എന്നിവരും മത്സരത്തിനിറങ്ങും

റിപ്പോർട്ട് ഇത് മുൻ കാലങ്ങളിലേതിനെക്കാൾ ഏറ്റവും കൂടുതലാണ് അഫ്ഗാനിസ്ഥാൻ പാലസ്തീൻ സിറിയ യെമൻ എന്നിവിടങ്ങളിലാണ് കൂടുതൽ കുട്ടികൾക്ക് ജീവൻ നഷ്ടമായത്

എൻ രക്ഷാസമിതിയ്ക്ക് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിലെ കണക്കാണിത്